അന്തരിച്ച മുൻരാഷ്ട്രപതി പ്രണാബ് മുഖർജിക്ക് രാജ്യം കണ്ണീരോടെ വിട നൽകി

രാജ്യത്ത് അൺലോക്ക് നാലാം ഘട്ടം നിലവിൽ വന്നു

അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം രാഷ്ടത്തിന്റെ സമ്പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ ഡൽഹിയില്ല ലോധി റോഡ് ശ്മശാനത്തിൽ ഇന്ന് ഉച്ചക്ക് ശേഷം സംസ്കരിച്ചു അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ പ്രത്യേക മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചായിരുന്നു സംസ്കാരം

വോയിസ് രാഷ്ടപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓംബിർള എന്നി വർ മുൻരാഷ്ട്രപതിയുടെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പി ച്ചു പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ധനമന്ത്രി നിർമലസീതാരാ മൻ സംയുക്തസേനാമേധാവി ജനറൽ ബിപിൻ റാവത്ത് മൂന്ന് സേനാ മേധാവികൾ എന്നിവരും അന്ത്യാഞ്ജലി അർപ്പിച്ചു

പി നദ്ദ കാൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശ്രീ അധീർ രഞ്ജൻ ചൌധരി കാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവത് ബിജെപി പ്രസിഡന്റ് ജെ പി നിദ്ദു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി രാഷ്ട്രീയ് ്ർന്താക്കളും അദ്ദേഹത്തി ന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തി

രാഷ്ട്രപതി ഭവനിലും പാർലമെൻറ് കെട്ടിടത്തിലും മറ്റു സർക്കാർ ഓഫീസുകളിലും ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ദുഃഖാചരണം പ്രഖ്യാപ്രിച്ചിട്ടുണ്ട് അയൽരാജ്യമായ ബംഗ്ലാദേശും നാളെ ദേശീയ ദുഃഖദീനമായി ആചരിക്കും തലച്ചോറിലെ രക്ത സ്രാവത്തെ തുടർന്ന് ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹം ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ യാണ് അന്തരിച്ചത്

പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ചേർന്ന മന്ത്രിസഭ ആദരസൂചക മായി രണ്ട് മിനിട്ട് മൌനം ആചരിച്ചു

മികവുറ്റ പാർലമെന്ററിയനെയും സമുന്നത നായ നേതാവിനെയുമാണ് രാഷ്ട്രത്തിന് നഷ്ടമായതെന്ന് പ്രമേയ ത്തിൽ പറയുന്നു

ഇന്ത്യ ചൈന ബന്ധത്തിൽ പ്രണബ് മുഖർജി വഹിച്ച പങ്ക് വളരെ വലുതാണ് അദ്ദേഹം ഇന്ത്യയിലെ ഒരു മികച്ച രാഷ്ട്രതന്തജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം ഇരുരാജ്യങ്ങളുടെയും സൌഹൃദത്തിന് കനത്ത നഷ്ടമാ ണെന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കി

അദ്ദേഹത്തിന്റെ മകനും മുൻ പാർലമെന്റ് അംഗവുമായ അഭിജിത്ത് മുഖർജിയാണ് ഇക്കാര്യം അറിയിച്ചത്

മേഖലയിൽ ചൈന കരാർ ലംഘനം നടത്തിയതിന്റെ ്തുടർന്നാണ് ജാഗ്രത ശക്ത മാക്കിയത് മേഖലയിലെ സംഘർഷ് പരിഹരിക്കാൻ ഇരു രാജ്യ ങ്ങളും തമ്മിലുള്ള ഉന്നതതല ച്ചർച്ച്കൾ നടന്നു വരികയാണ് അതിനിടെയാണ് കഴിഞ്ഞ ര്ണ്ടു ദിവസങ്ങളിലായി ചൈനയുടെ ഭാ ഗത്ത് നിന്ന് പ്രകോപനപ്പരമായ നീക്കം ഉണ്ടായത്

അതിർത്തി സംരക്ഷണത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ച കാണിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്തസേനാ മേധാവി ബിപിൻ റാവത്ത് കരസേനാ മേധാവി എം

മേഖലയിലെ ചൈനീസ് സൈന്യത്തിന്റെ നീക്കം വില യിരുത്തിയ യോഗത്തിൽ ഇന്ത്യൻ ഭാഗത്തെ ജാഗ്രത ശക്ത മാക്കാനും തീരുമാനിച്ചു

സുശീൽ ചന്ദ്രയ്ക്ക് പുറമെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ശ്രീ സുനിൽ അറോ റയാണ് നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ

ശരീരോഷ്മാവ് നാഡിമിടിപ്പ് ഓക്സിജന്റെ അളവ് എന്നിവ പരിശോധിക്കാൻ റോബോട്ടിന് കഴിയും

കിഴക്കൻ പടിഞ്ഞാറൻ മേഖലയിലെ എല്ലാ ജോലികളും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ മാനേജ്മെന്റ് സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർദേശിച്ചു

ഇ മെയിൻ പരീക്ഷയുടെ ആദൃദിനം വിജയകരമായി പര്യവസാനിച്ചു